പ്രളയക്കെടുതി നേരിടാൻ ഗവൺമെന്റ് ആവിഷ്കരിച്ച നടപടികളെ പിന്തുണക്കുന്നതിന് സർവ്വകക്ഷി യോഗം തീരുമാനിച്ചു പ്രളയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരി ക്കാൻ ഗവൺമെന്റ് ജീവനക്കാരുടെ അവധി ക്രമീകരി ച്ചു ത്യാഗത്തിന്റെ നിശ്ചയദാർഢൃത്തിന്റെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോ ഷിക്കുന്നു കേരളത്തിൽ പണം ചെലവാക്കി നടത്തുന്ന ആഘോഷങ്ങൾ ഒഴിവാക്കാൻ തീരുമാനം ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജ യത്തിനരികെ

ഇതിന് പുറമെ കൂടുതൽ ചെറുപയറും പരിപ്പും നൽകും സംസ്ഥാനത്തെ രക്ഷാ ദുരിതാശ്ചാസ് പ്രവർത്തനങ്ങൾ ഇന്നലെ തുടർച്ചയായ ആറാം ദിവസവും ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഡൽഹിയിൽ വിലയിരു ത്തി

പാചക വാതക വിതരണത്തിന് പ്രത്യേക സംവി നാനം ഏർപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നേരത്തെ നൽകിയ ഒരു കോടി ക്ലോറിൻ ഗുളികകൾക്ക് പുറമെ മൂന്നു കോടി ഗുളി കകൾകൂടി നൽകും

ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് കസ്റ്റംസ് തീരുവയും ജി

ടിയും

പ്രളയക്കെടുതി നേരിടാൻ ഗവൺമെന്റ് ആവിഷ്കരിച്ച നടപടികൾക്ക് പിന്തുണ നൽകാൻ തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന സർവ്വകക്ഷിയോഗം തീരുമാനിച്ചു പുനര ധിവാസ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് രാഷ്ട്രീയകക്ഷി നേതാക്കൾ ഉറപ്പ് നൽകി കേരളത്തിലെ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് യോഗ ത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകി ദുരന്തവേളകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വോളന്റി യർമാരാക്കാനും നടപടിയെടുക്കും പുനർ നിർമ്മാണ പ്രവൃ ത്തികളിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പി ക്കാനും തീരുമാനമായിട്ടുണ്ട് ദുരിതാശാസ കൃാമ്പുകളിൽ വനിതാ പൊലീസിന്റെയ ടക്കം സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ധാരണയായി ആളു കൾ മാറിത്താമസിക്കുന്ന വീടുകളിൽ മോഷണം ഉണ്ടാകു ന്നത് തടയാൻ പൊലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന നിർദ്ദേശവും യോഗത്തിൽ അംഗീകരിച്ചു കേരളത്തിൽ ഇതുവരെ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗൃമന്ത്രി ജെ

കേരളത്തിലെ സാഹചര്യം എല്ലാ ദിവ സവും നിരീക്ഷിച്ച് വരികയാണ്

സംസ്ഥാനത്ത് പ്രളയത്തിൽപ്പെട്ടവരുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് എൽ

ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് മരണസർട്ടിഫിക്കറ്റ് വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി വൈകിയ പ്രീമിയത്തിന് പിഴ ചുമത്തേണ്ടതില്ലെന്നും തീരു മാനിച്ചിട്ടുണ്ട്

ജില്ല യിൽ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തി ക്കുന്നത്

ഗർഭിണികളും അടിയന്തര ചികിത്സ ആവശ്യപ്പെടുന്നവരുമടക്കം ഒൻപതു പേരെ നെല്ലി യാമ്പതിയിൽനിന്ന് പാലക്കാട്ടെത്തിച്ചു തകർന്ന കുണ്ടറം ചോല പാലം താൽക്കാലികമായി പുനഃസ്ഥാപിച്ച് ്വചറിയ വാഹനങ്ങൾ കടത്തി വിടാൻ പ്രവർത്തനങ്ങൾ പുരോഗമി ക്കുകയാണ്

താൽക്കാലിക സുരക്ഷയൊരുക്കി പാലക്കാട് പട്ടാമ്പി പാലം കാൽനടയാത്രയ്ക്ക് തുറന്നുകൊടുത്തു രാവിലെ ആറു മുതൽ രാത്രി പത്തുവരെ ഇതുവഴി കടന്നുപോകാം പാല ത്തിന്റെ കൈവരികളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി പരിശോധനക്കുശേഷം ചെറിയ വാഹനങ്ങൾ കടത്തിവിടു മെന്ന് അധികൃതർ അറിയിച്ചു

കേരളത്തിന്റെ ദുഃഖത്തോടൊപ്പം മഹാരാഷ്ട്രയും ഉണ്ടെന്നും ദുരിതാശ്ചാസ പ്രവർത്തനത്തിന്റെ അവസാന നിമിഷം വരെ മെഡിക്കൽ സംഘത്തിന്റെ സഹായം ഉണ്ടാ കുമെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളമിറങ്ങിയ സാഹചര്യ ത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ജില്ലാ ഭരണകൂടം പ്രവർത്തനം ആരംഭിച്ചു പ്രളയക്കെടുതിയിലായിരുന്ന ആലപ്പുഴയിലെ കുട്ട നാട്ടിലും ചെങ്ങന്നൂരിലും ജലനിരപ്പ് നല്ല തോതിൽ കുറ ഞ്ഞു എന്നാൽ ചില മേഖലകൾ ഇപ്പോഴും വെള്ളത്തിനടി യിലാണ്

വീടിനകത്തും പുറത്തും കെട്ടിക്കി ടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പ്രയാസപ്പെടുക യാണ് തിരിച്ചെത്തിയവർ രക്ഷാ പ്രവർത്തനം പൂർത്തിയാ യതിനെത്തുടർന്ന് ഇന്ന് മുതൽ ശുചീകരണംപ്രവർത്തന ത്തിനാണ് മുൻഗണന

സംസ്ഥാനത്ത് വെള്ളപ്പൊക്കത്തിൽ ആധാർ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക്

ബാങ്കുകളും പോസ്റ്റ് ഓഫീസു കളും ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ ഇതിന് സൌകര്യം ഏർപ്പെ ടുത്തിയതായി സി ഇ ഒ അജയ് ഭൂഷൺ പാണ്ഡെ ഡൽഹി യിൽ പറഞ്ഞു പ്രളയ ദുരിതാശാസ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാൻ ഗവൺമെന്റ് ജീവനക്കാരുടെ അവധി ക്രമീകരിച്ച് പൊതുഭ രണവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു ദിവസം പകരം അവധി നൽകും ഇന്നുമുതൽ തുടർച്ചയായി അവധികൾ വരുന്ന സാഹചര്യത്തിലാണ് നടപടി കേന്ദ്ര സഹമന്ത്രി രാംദാസ് അതാവലെ നാളെ മലപ്പുറം ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും രണ്ടു മാസത്തെ ശമ്പളം ദുരിതാശാസ നിധിയിലേക്ക് മന്ത്രി കൈമാ റും മഴക്കെടുതി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകി ശുചീകരണ സാമഗ്രി കൾ ശേഖരിക്കാൻ ജില്ലാ പഞ്ചായത്തിൽ സമാഹരണ കേന്ദ്രവും തുറന്നു ഇന്നത്തെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യുട്ടീവ് എക്സ്പ്രസും കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്ര സും ഷൊർണൂർ എറണാകുളം പാസഞ്ചറും റദ്ദാക്കിയ തായി റെയിൽവേ അറിയിച്ചു പാലക്കാട് തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ്സുകളും റദ്ദാക്കിയിട്ടുണ്ട്

ഇന്നലെ പുനലൂർ വരെ മൂന്ന് പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തി മഴ ക്കെടുതികൾമൂലം പതിനഞ്ചാം തീയതി മുതലാണ് സർവീസ് മുടങ്ങിയത് പ്രതികൂല കാലാവസ്ഥയെത്തുടർന്ന് നിർത്തിവെച്ച എറ ണാകുളം ഫോർട്ടുകൊച്ചി മട്ടാഞ്ചേരി ബോട്ട് സർവ്വീസ് ഉടൻ പുനരാരംഭിക്കണമെന്ന് പശ്ചിമ കൊച്ചി പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മഴക്കെടുതിയെത്തു ടർന്നാണ് ദിവസങ്ങളായി ബോട്ട് സർവ്വീസ് നിർത്തിവെച്ച ത് റെയിൽവേ കേരളത്തിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ പരീക്ഷാ തീയതികൾ പുനഃക്രമീകരിക്കുമെന്ന് അറിയിച്ചു വെള്ളപ്പൊക്കത്തെത്തുടർന്ന് നിരവധി ഉദ്യോ ഗാർത്ഥികൾക്ക് പരീക്ഷയെഴുതാൻ കഴിയാത്ത സാഹചര്യ ത്തിലാണിത് പുതിയ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു

സി എ ആർ പ്രവേശന പരീക്ഷയുടെ ഫല പ്രഖ്യാ പനം ഹൈക്കോടതി മൂന്നാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു കാല വർഷക്കെടുതികളെത്തുടർന്ന് സംസ്ഥാനത്തെ അപേക്ഷ കർക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് പരീക്ഷ മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഐ സി

ആർ അതിന് തയ്യാറായില്ല

വിഷയത്തിൽ ഐ സി

ആറിനും കേന്ദ്ര ഗവൺമെന്റിനും കോടതി നോട്ടീസയച്ചു ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും നിശ്ചയ ദാർഢ്യ ത്തിന്റെയും സ്മരണയിൽ ഇസ്ലാംമത വിശ്ചാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് പെരുമഴയും പ്രള യവും ഉണ്ടാക്കിയ കെടുതികളിൽ ആഘോഷങ്ങൾക്ക് മങ്ങ ലേറ്റിട്ടുണ്ടെങ്കിലും കഠിനാനുഭവങ്ങളിലൂടെ കടന്നുവന്ന ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ ഈ നാളുകളിൽ വിശ്വാ സികൾക്ക് കരുത്ത് പകരും

മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഈദ്ഗാഹുകൾ നാമമാത്ര മായിരിക്കും പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനയോടൊപ്പം പ്രളയബാധിതർക്കായി സഹായങ്ങൾ സമാഹരിക്കുകയും ചെയ്യും ബലിപെരുന്നാളിന് പണം ചെലവാക്കി നടത്തുന്ന എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കി

മലപ്പുറം ഖാസി ഒ

എം മുത്തുക്കോയ തങ്ങൾ മാ അദീൻ ചെയർമാൻ ഖലീൽ ബുഖാരി തങ്ങൾ എന്നിവരും ബലിപരുന്നാൾ ദുരിത ബാധിതർക്ക് സഹായമെത്തിക്കുന്ന തിനായി സമർപ്പിക്കാൻ പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജ യത്തിനരികിൽ